ശതമാനം പോളിംഗ് വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരം

പോളിംഗ്

ഗാന്ധിക്ക് സുപ്രീംകോടതിയുടെ നോട്ടീസ്

ഇറാനുമേലുള്ള ഉപരോധം ചാബഹാർ തുറമുഖ പദ്ധതിയെ ബാധിക്കില്ലെന്ന് അമേരിക്ക

ഐപിഎൽ ക്രിക്കറ്റിൽ ഹൈദരാബാദിനെതിരെ ചെന്നൈയ്ക്ക് ആറ് വിക്കറ്റ് ജയം

ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷണർ ഉമേഷ് സിൻഹയാണ് ഇക്കാര്യം അറിയിച്ചത് കൂടുതൽ വിവരങ്ങളുമായി കവിത സുനു

വിശദാംശങ്ങളുമായി കവിത സുനു

ഉത്തർപ്രദേശിലെ വാരാണസിയിൽനിന്നുമാണ് ശ്രീ

വാരാണസിയിലെ സിറ്റിംഗ് എംപിയാണ് ശ്രീ

രാഹുൽഗാന്ധിയുടെ പരാമർശം അനുചിതമെന്ന് നേരത്തെ കോടതി അഭിപ്രായപ്പെട്ടിരുന്നു

രാഹുൽഗാന്ധിക്കെതിരെ ബി ജെ

ഭൂചലനത്തിന്റെ പ്രകമ്പനം ടിബറ്റിലും അനുഭവപ്പെട്ടതായി ചൈനയുടെ സിൻഹ്വ വാർത്താ ഏജൻസി അറിയിച്ചു

അടുത്ത മാസം മുതൽ പദ്ധതി നടപ്പാക്കും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ മറ്റ് പ്രമുഖ എണ്ണ ഉത്പാദക രാജ്യങ്ങളിൽ നിന്ന് അധിക എണ്ണ വിതരണം ഉണ്ടാകുമെന്ന് മന്ത്രാലയം ഇന്നലെ പുറത്തിറക്കിയ ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നു

വിഷയത്തിൽ അമിക്കസ് ക്യൂറിയായിരുന്ന മുതിർന്ന അഭിഭാഷകൻ വിജയ് ഹൻസാരിയ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ചീഫ് ജസ്റ്റിസ് രഞജൻ ഗൊഗോയ് ജസ്റ്റിസുമാരായ ദീപക് ഗുപ്ത സഞ്ജീവ് ഖന്ന എന്നിവരടങ്ങിയ ബഞ്ച് നിർദ്ദേശം പുറപ്പെടുവിച്ചത്

ചെന്നൈയിൽ ഒരു ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ലോകത്ത് നടക്കുന്ന നൂതന പരിവർത്തനങ്ങൾ സ്വാംശീകരിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവരാൻ എല്ലാവരും ശ്രമിക്കണം

ഗ്രാമ വികസനത്തിനും ഗ്രാമ നഗരാന്തരം കുറയ്ക്കാനും നൂത്യന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു

എസ് ഭീകരപ്രവർത്ത്നവുമായി ബന്ധപ്പെട്ട് ഒരാളെ ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തു രാജൃ തലസ്ഥാന മേഖലയിലും ഉത്തർപ്രദേശിലുമായി ഐ എസ് മാതൃകയിൽ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ടെന്ന് ആരോപിച്ച് ഡൽഹി സ്വദേശിയായ മൊഹമ്മദ് ഫെയ്സിനെയാണ് അറസ്റ്റ് ചെയ്തത്

അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന് നൽകിയിരുന്ന ഇളവുകൾ പുതുക്കി നൽകേണ്ടതില്ലെന്ന തീരുമാനം ഇന്ത്യ ഇറാനിൽ നിർമിക്കുന്ന ഛാബഹാർ തുറമുഖ പദ്ധതിയെ ബാധിക്കില്ലെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങാൻ ഇന്ത്യ ഉൾപ്പെടെ എട്ട് രാജ്യങ്ങൾക്ക് അമേരിക്ക അനുമതി നൽകിയിരുന്നു അഫ്ഗാനിസ്ഥാന് പുനർനിർമാണത്തുനുുള്ള സഹായത്തിനും സമ്പദ്വൃവസ്ഥയുടെ വികസനത്തിനൂർ നൽകിയ ഇളവുകൾക്കൊപ്പം ഛാബഹാർ തുറമുഖത്തിന്റെട്ട് പികസന പ്രവർത്തനവും ഉൾപ്പെടുമെന്നും സ്റ്റേറ്റ് ഡിപ്പാർട്ട്ട്ട്മന്റ് വക്താവ് പറഞ്ഞു

ഇന്റലിജൻസ് വിവരങ്ങളനുസരിച്ച് നടപടിയെടുത്തിരുന്നെങ്കിൽ തടയാമായിരുന്നെന്ന് ശ്രീലങ്കൻ ഗവൺമെന്റ് ആക്രമണങ്ങൾ വെളിപ്പെടുത്തി കൂടുതൽ ആക്രമണങ്ങൾ തടയാൻ സൈന്യം ശ്രമിക്കുകയാണെന്ന് പ്രധാനമന്ത്രി റെനിൽ വിക്രമസിംഗെ പറഞ്ഞു ആക്രമണങ്ങൾക്ക് പിന്നിൽ വിദേശ ബന്ധങ്ങൾ ഉള്ളതായും ബന്ധങ്ങൾ സംബന്ധിച്ച അന്വേഷണങ്ങൾ ഐ എസ് പുരോഗമിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

രാത്രി എട്ടുമണിക്ക് നടക്കുന്ന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും കിങ്സ് ഇലവൻ പഞ്ചാബും ഏറ്റുമുട്ടും